നരേന്ദ്രമോദി പട്ടയം വിതരണം ചെയ്തു

ദിനത്തിൽ ധീര നേതാവിന് ശാഷ്ട്രത്തിന്റെ പ്രണാമം പരാക്രം ദിവസ് ആഘോഷം കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ്പിണറായി വിജയൻ നിർവ്വഹിച്ചു

ശിവസാഗറിൽ നടന്ന ചടങ്ങിൽ പട്ടയ വിതരണത്തിന് തുടക്കം കുറിച്ചു തദ്ദേശീയരായ ജനങ്ങൾ ഭൂരഹിതരായി കഴിയുന്നത് നിർഭാഗ്യകരമാണെന്നും ജനതയുടെ ദീർഘകാല അഭിലാഷമാണ് യാഥാർത്ഥ്യ മാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അസ്സം സർക്കാർ ഇതിനകം ഒരു ലക്ഷം ഭൂരഹിതർക്ക് പട്ടയ വിതരണം ചെയ്തിട്ടുണ്ട്

അസ്സം ജനതയുടെ അവകാശങ്ങളും സംസ്കാരവും നിലനിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നേരത്തെ ടിറ്ററിൽ കുറിച്ചു

നേതാജിയെ അനുസ്മരിച്ച് രാഷ്ട്രം ഇന്ന് പരാക്രം ദിവസ് ആയി ആഘോഷിക്കുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ നേതാജി ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കും

ഉച്ചയ്ക്കുശേഷം കൊൽക്ക്ത്ത്യിൽ എത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ ലൈബ്രറിയിലെ ആർട്ടിസ്റ്റ് ക്യാമ്പ് സന്ദർശിക്കും

സ്മാരക സ്റ്റാമ്പും തപാൽ കവറും ശ്രീ നരേന്ദ്രമോദി ചടങ്ങിൽ പ്രകാശനം ചെയ്യും

നേതാജി സൂഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതവും വീക്ഷണവും പ്രതിപാദിക്കുന്ന സാംസ്കാരിക പരിപാടിയും ഒരുക്കിയിട്ടുണ്ട്

ധീരനായ നേതാവിന്റെ നിസ്സീമമായ രാജ്യ സ്നേഹത്തെയും ധൈര്യത്തെയും ആദരിക്കാനുളള ഉചിതമായ ആഘോഷമാണ് പരാക്രമ് ദിവസ് എന്ന് ശ്രീ രാംനാഥ്കോവിന്ദ് ടിറ്ററിൽ കുറിച്ചു ഇന്ത്യൻ ജനതയിൽ രാജ്യസ്നേഹം വളർത്തിയ നേതാവായിരുന്നു നേതാജി

നേതാജിയുടെ ത്യാഗവും രാജ്യസ്നേഹവും എക്കാലവും പ്രചോദനമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു

ധീരത സമർപ്പണം ത്യാഗം എന്നീ ഗുണങ്ങളെ മുറുകെ പ്പിടിച്ച നേതാജി ബ്രിട്ടീഷ് ഭരണത്തിന്റെ പിടിയിൽ നിന്ന് മാതൃരാജ്യത്തെ മോചിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചതെന്ന് ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

ശക്തമായ സ്വതന്ത്ര ഭാരതത്തിന് നേതാജിയുടെ ആശയങ്ങൾ ഊർജ്ജം പകരുകയാണെന്നും ശ്രീ നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ജനക്ഷേമത്തിനായി താക്കറെ അക്ഷീണം പ്രയത്നിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അസ്സമിലെ ഗുവാഹത്തിയിൽ വൈകിട്ടു നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സായുധസേനയുടെ ആയുഷ്മാൻഭാരത് പദ്ധതികൾക്ക് ശ്രീ അമിത്ഷാ തുടക്കം കുറിക്കും

കൊക്രജാറിൽ നാളെ നടക്കുന്ന ബി ടി ആർ കരാറിന്റെ ഒന്നാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടന പരിപാടിയിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും

ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടു്ണ്ട്

വാക്സിൻ നിർമാണത്തിൽ ആഗോള ഹബായ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിന് മിക്ക രാജ്യങ്ങളും ആവശ്യം ഉന്നയിച്ചതായി വിദേശകാര്യവക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ടരകോടിയോളമാണ്

നാടിന്റെ സമഗ്ര വികസനം ത്തിതപ്പെടുത്താൻ തടസ്സരഹിതമായ റോഡ് ശൃംഖല ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലെവൽക്രോസ് പ്പിച്ചുക്തകേരളം എന്നതാണ് പദ്ധതികൊണ്ട് ലക്ഷ്യംവയ്ക്കുന്നത് മുതൽമുടക്ക് വരുന്ന പദ്ധതി കീഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഒരു വർഷത്തിനകം പ്പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ മുംബൈ സിറ്റിക്ക് ജയം

കോവിഡ് മഹാമാരിയെ അതിജീവിക്കാനുളള യത്നത്തിൽ മ്ഹത്തായ ഒരു പങ്കാളിയെയാണ് ബ്രസീലിന് ലഭിച്ചതെന്ന് പ്രബ്ബോൾസൊനാരോ ടിറ്ററിൽ കുറിച്ചു